ജമ്മു മേഖലയിലെ അഞ്ച് ജില്ലകളിൽ നിരോധനാജ്ഞ പൂർണമായും പിൻവലിച്ചു

കർണാടകയിൽ പ്രപള്യാനന്തര സാഹചര്യങ്ങൾകേന്ദ്ര ധനകാരൃമന്ത്രി നിർമ്മലാ സീതാരാമൻ വിലയിരുത്തി

പടിഞ്ഞാറൻ ടാൻസാനിയയിലെദാർഎസ്

രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്

മഴക്കെടുതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു കാലവർഷ കെടുതി നാടൊന്നിച്ച് നേരിടുമെന്നും തെറ്റായ പ്രചാണങ്ങൾ നടത്തി ആളുകളെ ഭീതിപ്പെടുത്തരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു

മേപ്പാടി പുത്തുമലയിൽ നിന്നുള്ള്ള്ള്ള് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്

ബാഗൽകോട്ടിലേയും ബെലഗാവിയിലെയും വെള്ളപ്പൊക്ക പ്രദേശങ്ങളും ശക്തമായ മഴയെ തുടർന്നുള്ള ദുരിതബാധിത പ്രദേശങ്ങളും സന്ദർശിച്ച് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു

കേന്ദ്രഗവൺമെന്റ് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പ് വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു

കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ളാത് ജോഷിയും കർണാടകയിലെ ധർവാദ് ജില്ലയിലെ മഴകെടുതി പ്രദേശങ്ങൾ സന്ദർശിച്ചു

മുൻ മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമിയും ബലഗാവി ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു

വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം പിൻവല്ലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്

കാശ്മീർ മേഖലയിൽ വികസനമുണ്ടായാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഭിന്നിപ്പിക്കാൻ തങ്ങൾക്ക്കഴിയില്ല എന്ന വിഷമമാണ് പാകിസ്ഥാനെ നയിക്കുന്നത് ജമ്മു കാശ്മീരിന്റെ താൽപരൃങ്ങൾ സംരക്ഷി ക്കുന്നതിനുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് നയതന്ത്ര ബന്ധങ്ങൾ വിച്ചേദിക്കാനും സംഝോധ എക്സ്പ്രസ് നിർത്തിവയ്ക്കാനുമുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്ന് ഇന്ത്യവൃക്തമാക്കി ഇക്കാര്യങ്ങൾ പുനഃപ്പരിശോധിക്കാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

ജമ്മുക്കാൾമീർ സംബന്ധിച്ച ഇന്ത്യയുടെ നടപടികളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ ബോദ്ധ്യപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ശ്രീ

ചികിത്സയോട് പ്രതികരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആരോഗൃനില തൃപ്തികരമാണെന്നും ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ ജെയ്റ്റ്ലിയുടെ കുടുംബാംഗങ്ങളുമായും കുറിച്ചു

കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ്സിംഗ് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർല എന്നിവർ ജയ്റ്റ്ലിയുടെ ആരോഗ്യനില അന്വേഷിച്ച് ആശുപത്രിയിൽ എത്തിയിരുന്നു